കെ ശൈലജ

കാര്യങ്ങൾ കൈവിട്ടുപോകുമെന്ന അവസ്ഥയിൽനിന്നാണ് കേരളം തിരികെ വന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി അനുഷ ആത്മപ്രകാശ് വോയ്സ് ഒരു ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ രോഗികൾ കേരളത്തിലായിരുന്നു

ഗവൺമെന്റ് ഓഫീസുകളുടെ പ്രവർത്തനം സുഗമമാക്കാൻ അടുത്ത് താമസിക്കുന്നവർക്ക് സ്വന്തം വാഹനത്തിലെത്താൻ അനുമതി നൽകും

ഡൽഹിയിൽ കുടുങ്ങിപ്പോയ മലയാളി വിദ്യാർത്ഥികൾ വീട്ടുടമകളുടെ ഭീഷണി നേരിടുന്നുവെന്ന വാർത്തകളിൽ ഡൽഹി ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് പരിഹാരത്തിന് ശ്രമിക്കുമെന്ന് പിണറായി വിജയൻ അറിയിച്ചു ഡൽഹി കേരള ഹൌസിൽ മലയാളി നഴ്സുമാരുടെ മാനസിക സമ്മർദ്ദം പരിഹരിക്കാൻ ഹെൽപ് ലൈൻ ആരംഭിക്കും

ദേദ സംസ്ഥാനത്തെ പുതുക്കിയ ലോക്ഡൌൺ മാർഗ നിർദേശങ്ങൾ കോട്ടയം ഇടുക്കി ജില്ലകൾ ഉൾപ്പെട്ട പച്ച തിരുവനന്തപുരം ആലപ്പുഴ തൃശൂർ പാലക്കാട് വയനാട് ജില്ലകൾ ഉൾപ്പെട്ട ഓറഞ്ച് ബി സോണുകളിൽ ഇന്ന് നിലവിൽ വരും കൊല്ലം പത്തനംതിട്ട എറണാകുളം ജില്ലകളടങ്ങുന്ന ഓറഞ്ച് എ സോണിൽ ഇത് എപ്പോൾ നിലവിൽ വരുമെന്ന് ഇന്ന് അറിയാം കാസർകോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകൾ ഉൾപ്പെട്ട റെഡ് സോണിൽ മെയ് മൂന്ന് വരെ സമ്പൂർണ ലോക്ഡൌൺ തുടരും ഒരു ലോക്ഡൌണിനുശേഷം കേരളത്തിൽ മടങ്ങിയെത്തുന്ന പ്രവാസികളെ പരിശോധിക്കാനും വിമാനത്താവളത്തിന് സമീപം തന്നെ ക്വാറന്റൈൻ ചെയ്യാനും രോഗം സംശയിക്കുന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റാനും ഗവൺമെന്റ് പദ്ധതി രൂപീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു രണ്ട് ലക്ഷത്തിലേറെപ്പേരെ ക്വാറന്റൈൻ ചെയ്യാൻ സംവിധാനമൊരുക്കും ഇതിൽ അധികം പേർ വന്നാലും താമസിപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രവാസികൾക്ക് നാട്ടിലേക്ക് മടങ്ങാൻ കേന്ദ്രം സൌകര്യം ഏർപ്പെടുത്തിയാൽ എത്തുന്നവരുടെ മുഴുവൻ കാര്യങ്ങളും സംസ്ഥാനം ഏറ്റെടുക്കും കേന്ദ്ര തീരുമാനം വരുന്നതുവരെ പ്രവാസികൾ ഇപ്പോൾ കഴിയുന്ന രാജ്യങ്ങളിൽ അവിടുത്തെ മാർഗ്ഗ നിർദ്ദേശങ്ങൾ പാലിച്ച് കഴിയണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു

ഇവരെല്ലാം കണ്ണൂർ ജില്ലക്കാരാണ് അഞ്ചുപേർ വിദേശത്തുനിന്ന് വന്നവരും ഒരാൾ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചയാളുമാണ്

ടെട കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ പുതിയ കോവിഡ് പോസിറ്റീവ് കേസുകളില്ല

ആലപ്പുഴ ജില്ലയിലും കോവിഡ് ചികിത്സയിൽ ഇപ്പോൾ ആരുമില്ല വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടായിരുന്ന തബ് ലീഗ് യോഗത്തിൽ പങ്കെടുത്ത രണ്ടുപേരെ ഡിസ്ചാർജ്ജ് ചെയ്യാൻ മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചു ദേദ കണ്ണൂരിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത ആറ് കൊറോണ കേസുകളിൽ അഞ്ചുപേരും വിദേശത്തു നിന്ന് വന്നവരാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

കാസർകോട് മാതൃകയിൽ ട്രിപ്പിൾ ലോക് സംവിധാനം നടപ്പാക്കാനാണ് തീരുമാനം ചിലയിടങ്ങളിൽ റോഡുകൾ പൂർണ്ണമായി അടക്കും അനാവശ്യമായി പുറത്തിറങ്ങുന്നവരെ ക്വാറന്റൈൻ ചെയ്യുന്ന കാര്യവും പരിഗണിക്കുന്നുണ്ട്

വിശദാംശങ്ങളുമായി ആകാശവാണി കാസർകോട് ലേഖകൻ പി ജഗന്നിവാസൻ

ഇതിനാവശ്യമായ പി സി ആർ യന്ത്രവും കിറ്റുകളും മറ്റ് സംവിധാനങ്ങളും നേരത്തെ തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നു

ഇതിന് പുറമെ കോഴിക്കോട്ടും എറണാകുളത്തും രണ്ട് സ്വകാര്യ ലാബുകളിലും പരിശോധന നടത്തുന്നുണ്ട്

എന്നാൽ പ്രധാൻമന്ത്രി ഗ്രാമീൺ കല്യാൺ യോജനയിൽ അന്ത്യോദയ അന്നയോജന മുൻഗണനാ വിഭാഗക്കാർക്ക് മുൻ നിശ്ചയ പ്രകാരം സൌജന്യ അരി വിതരണം തുടരും ദേദ ഇടുക്കി ജില്ലയിലെ ഏലം കർഷകരുടെ കുടിശ്ശിക ലേലത്തുക മെയ് മൂന്നിനകം കൊടുത്തു തീർക്കാൻ ശക്തമായ ഇടപെടൽ നടത്തണമെന്ന് മന്ത്രി എം

ഒരു കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ മന്ത്രി വി എസ് സുനിൽകുമാർ നിർദ്ദേശം നൽകി ഇതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ മേയർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി മന്ത്രി ചർച്ച നടത്തി ദേദ ഇടുക്കി ജില്ലയിൽ റോഡ് ടാറിംഗ് ഉൾപ്പെടെ അടിയന്തര നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അനുമതി നൽകി കോവിഡ് നിയന്ത്രണചട്ടം പാലിച്ച് തൊഴിലാളികളെ വിന്യസിക്കാം നിർമ്മാണ സാമഗ്രികളുടെ നീക്കം അനുവദിക്കും മഴക്കാല അടിയന്തര സാഹചര്യങ്ങളിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ അഭയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കുമെന്ന് ജില്ലാ കലക്ടർ പറഞ്ഞു ദുദ മഹാരാഷ്ട്രയിൽ രണ്ട് സന്യാസിമാരെയും അവരുടെ വാഹനത്തിന്റെ ഡ്രൈവറെയും പൊലീസ് നോക്കിനിൽക്കെ ആൾക്കൂട്ടം ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി അഗാധ ദുഃഖം അറിയിച്ചു രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ കപട മതേതര മുഖംമൂടിയണിഞ്ഞ് ഹൈന്ദവ വിരുദ്ധ സംസ്കാരം വളർത്തുകയാണെന്ന് സമിതി കോഴിക്കോട്ട് കുറ്റപ്പെടുത്തി രുര കോവിഡ് നിയന്ത്രണങ്ങൾമൂലം ദുരിതമനുഭവിക്കുന്ന ഹിന്ദി പ്രചാരകർക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സാമ്പത്തിക സഹായം നൽകണമെന്ന് രാഷ്ട്ര ഭാഷാവേദി സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടു കോഴിക്കോട്ട് വീഡിയോ കോൺഫറൻസ് വഴിയാണ് സംസ്ഥാന സമിതി യോഗം ചേർന്നത്